കർണാടക നിയമസഭയിൽ വിശ്വാസപ്പ്രമേയ ചർച്ച പുനഃരാ രംഭിച്ചു വിശ്വാസവോട്ടെടുപ്പ് വൈകിട്ട് ആറിന് സംസ്ഥാനത്ത് കാലവർഷം തുടരുന്നു

കണ്ണൂരിൽ ജീപ്പ് ഒഴുക്കിൽ പെട്ട് കാണാതായി യുവാ്പിന്റെ മൃതദേഹം കണ്ടെ ടുത്തു എറണാകുളത്തെ നിപ വിമുക്തജില്ലയായി പ്രഖ്യാപിച്ചു

അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ്ചാമ്പ്യൻഷിപ്പിന് വെള്ളിയാഴ്ച കോഴിക്കോട്ട് തുടക്കമാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിനോട് കശ്മീർ പ്രശ്നപരിഹാരത്തിന് ഒരു സഹായവും തേടിയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ വ്യക്തമാക്കി എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നേരിട്ട് സഭ യിൽ വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു

കശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥതവഹിക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ ഗവൺ മന്റ് നിലപാട് വ്യക്തമാക്കണമെന്ന് സഭ ചേർന്ന ഉടൻ തന്നെ പ്രതി പക്ഷം ആവശ്യപ്പെടുകയായിരുന്നു ബഹളം മൂലം ഉച്ചവരെ രാജ്യ സഭ നിർത്തിവെച്ചു അയോഗ്യതാ വിഷയത്തിൽ ഹാജരാവാൻ ഒരുമാസത്തെ സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് കർണാടകയിലെ വിമത എംഎൽഎമാർ സ്പീക്കർക്ക് കത്ത് നൽകി

എംഎൽഎമാർ മുംബൈയിൽ തന്നെ തുടരുകയാണ് വോട്ടെടുപ്പ് കഴിയാതെ ബംഗളുരുവിലേക്ക് തിരിച്ചെത്തില്ലെന്ന നില പാടിലാണ് ഇവർ അതിനിടെ നിയമസഭയിൽ വിശ്വാസ്ത്രമേയ ചർച്ച പുനഃരാ രംഭിച്ചു

നാലു മണിക്കുമുമ്പ് ചർച്ച പൂർത്തിയാക്കണമെന്ന് സ്പീക്കർ കെ ആർ രമേഷ് കുമാർ റൂളിംഗ് നൽകിയിരുന്നു വിശ്വാസവോട്ടെടുപ്പ് വൈകിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ക്ക്ഷിരഹിത എംഎൽഎമാർ നൽകിയ ഹർജി സുപ്രീംകോട്ടതി ഇന്ന് പരിഗണിക്കും

ശക്തമായ് മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്ത് ഇന്നലെ കടലിൽ കണ്ടെത്തിയ മൃതദേഹം നീണ്ടകരയിൽ മത്സ്യബന്ധനവള്ളം തകർന്ന് കാണാതായ രാജുവിന്റെതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു രാജു തമിഴ്നാട് നീരോടി സ്വദേശിയാണ് രാജുവിനൊപ്പം കടലിൽ കാണാതായ ജോൺ ബോസ്കോയ്ക്കായ് തെരച്ചിൽ തുടരുന്നു വള്ളം കാറ്റിൽപെട്ട് തകർന്നുണ്ടായ അപകടത്തിൽ രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു സഹായരാജ്ന്റെ മൃതദേഹം കഴിഞ്ഞദിവസം കൊല്ലത്ത് കണ്ടെത്തിയിരുന്നു

ഇന്ന് രാവിലെ വട്ട്യാംതോട് പാലത്തിനടുത്തായാണ് മൃതദേഹം കണ്ടെത്തയത് കോളിത്തട്ടിലെ ലതീഷാണ് മരിച്ചത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മഴക്ക് അല്പം ശമനമമുണ്ട് കൊയിലാണ്ടി കീഴരിയൂരിൽ ദുരിതാശ്വാസ ക്യാംപ് തുടരുന്നു ഇന്നലെ രാത്രി പെയ്ത മഴയിൽ എലത്തൂരിൽ ഒരു വീട് പൂർണമായും വടകര നരിപ്പറ്റയിൽ ഒരു വീട് ഭാഗികമായും തകർന്നു ഒരു മരണമാണ് കാലവർഷ കെടുതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്

കൊച്ചി യിൽ രാവിലെ നടന്ന ചടങ്ങിൽ മന്ത്രി കെ കെ ശൈലജയാണ് പ്രഖ്യാ പനം നടത്തിയത് നിപയെ നേരിടുന്നതിൽ കേരളം കൂട്ടായ പ്രവർത്ത നമാണ് കാഴ്ചവെച്ചതെന്നും അതുവഴി മാനവരാശിയുടെ ഉത്തരവാ ദിത്തമാണ് നാം നിർവഹിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഭാവിയിൽ ഇത്തരം വിപ്പത്തുകൾ നേരിടുവാൻ പൊതു ആ രോഗ്യമേഖല ശക്തിപ്പെടുത്തുമെന്നും അതിനായി ആധുനിക സംവി ധാനങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു നിപയെ നേരിടുന്ന കാര്യത്തിൽ സ്വകാര്യ ഗ്വ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യ ത്തിൽ സ്വകാര്യമേഖലയുടെ പങ്കാളിത്തം കൂടുതൽ പ്രയോജനപ്പെടു ത്തുമെന്നും ശൈലജ അറിയിച്ചു സ്വാതന്ത്യ്സമര സേനാനികളായ ബാലഗംഗാധരതിലകനും ചന്ദ്ര ശേഖർ ആസാദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപിച്ചു സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് ഇരുനേതാക്കളും നൽകിയ സംഭാവനകൾ അളവറ്റതാണെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

പൂർണ്ണ സ്വരാജിനായി ജീവിതം അർപ്പിച്ച മഹാനായിരുന്നു ബാലഗം ഗാധരതിലകനെന്നും ഭയപ്പാടില്ലാത്ത പോരാളിയായിരുന്നു ആസാ ദെന്നും അദ്ദേഹം അനുസ്മരിച്ചു

വിവരാവകാശ നിയമത്തെ പൂർണമായും അട്ടിമറിയ്ക്കാൻ കേന്ദ്രഗവൺമെന്റ് നടത്തുന്ന നീക്കം ആശങ്കാജനകമാണെന്ന് യുപി എ അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി ഭൂരിപക്ഷം ഉപയോഗിച്ച് ലക്ഷ്യംനേടാൻ ഗവൺമെന്റിന് കഴിഞ്ഞേക്കാ മെങ്കിലും രാജ്യത്തെ ഓരോ പൌരന്റെയും അധികാരം ഇല്ലാതാ ക്കുന്നതാണ് നടപടിയെന്ന് അവർ അഭിപ്രായപ്പെട്ടു യുപിഎ ഭരണകാലത്ത് വിപുലമായ ചർച്ചകളും കൂടിയാലോ ചനയും നടത്തി പാർലമെന്റ് ഏകകണ്ഠമായ്യാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയതെന്നും നിയമും ഇപ്പോൾ നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണെന്നും അവർ പറഞ്ഞു

വിവരാവകാശ നിയമം ശല്യമായി കണ്ട് അതില്ലാതാക്കാൻ ആഗ്രഹിക്കുകയാണെന്നും അതിന് വേണ്ടി യാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ തെരഞ്ഞെടുപ്പ് കമ്മീ ഷനും കേന്ദ്ര പ്രിജിലൻസ് കമ്മീഷനും സമാനമാക്കിയതെന്നും അവർ പറഞ്ഞു തിങ്കളാഴ്ച വിവരാവകാശ നിയമത്തിൽ കേന്ദ്രഗ വ കൊണ്ടുവന്ന ഭേദഗതി ലോക്സഭ പാസ്സാക്കിയതിനോട് പ്രതി കരിക്കുകയായിരുന്നു സോണിയാഗാന്ധി ശബരിമലവിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയു ണ്ടായെന്നും ഇക്കാര്യത്തിൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകു മെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണൻ പറഞ്ഞു സിപിഐഎം തിങ്കളാഴ്ച ആരംഭിച്ച ഭവന സന്ദർശനത്തിനിടെ ജനങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ വികാരം നേരത്തെതന്നെ മനസ്സിലാക്കേണ്ട തായിരുന്നുവെന്ന് കോടിയേരി അഭിപ്രായപ്പെട്ടു ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോ ടതി വിധിയെ എല്ലാ രാഷ്ട്രീയപാർട്ടികളും ആദ്യഘട്ടത്തിൽ സ്വാഗതംചെയ്യുകയാണുണ്ടായത് അതിന്ശേഷം ചില രാഷ്ട്രീ യപാർട്ടികൾ നിലപാട് മാറ്റിയെന്നും കോടിയേരി പറഞ്ഞു

പ്ര നടപ്പ് പാർലമെന്റ് സമ്മേളനും പത്ത് ദിവസം കൂടി നീട്ടുന്ന കാര്യം കേന്ദ്രഗവ

ഇത്തരം കെട്ടിടങ്ങളിൽ ക്ലാസുകൾ നടത്തരുതെന്ന് മാനവിഭവ ശേഷി മന്ത്രാലയം ഉടൻ ഉത്തരവ് നൽകും

അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഏഴാം പതിപ്പിന് വെള്ളിയാഴ്ച കോഴിക്കോട് തുട്ടക്കമാവും

മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ടൂറ്റിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ ടൂറിസംപ്രമോഷൻ ക്യൌൺസിലും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസ്റ്റൈിയും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്

പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്ന നവീകരിച്ച ഉദ്യാനുവും അനുബന്ധ വികസന പ്രവർത്തനങ്ങ ളും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിനോദസ്ഞ്ചാര് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് മുഖാന്തരമാണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലയിലെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിലെ കാഞ്ഞിരപ്പുഴ ഡാം വാടിക വെള്ളിയാങ്കല്ല് ടൂറിസം കേന്ദ്രങ്ങളിൽ ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു

മന്ത്രി എം എം മണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോള ജിൽ ഇന്ന് ശസ്ത്രക്രിയക്ക് വിധേയനാക്കും തലയോട്ടിക്കും തല ച്ചോറിനും ഇടയിൽ കണ്ടെത്തിയ നേരിയ രക്തസ്രാവം പരിഹരി ക്കുന്നിനാണ് ശസ്ത്രക്രിയയെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു

വയനാട് അമ്പല്പവയലിൽ ഇതരസംസ്ഥാന യുവതിക്കും കൂടെ യുണ്ടായിരുന്ന യുവാവിനും പ്രദേശവാസികളുടെ ക്രൂരമർദ്ദനം ഞായറാഴ്ച രാത്രി നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവന്നതോടെയാണ് സംഭവം വിവാദമായത് യുവാവ് തന്റെ ഭർത്താവാണെന്നാണ് യുവതി പറയുന്നത് നാട്ടു കാർ നോക്കിനിൽക്കെയായിരുന്നു ഇരുവരും ക്രൂരമർദ്ദനത്തിന് വിധേയരായത് ഇവരെ മർദ്ദിച്ചു ഓട്ടോ ഡ്രൈവർ അമ്പലവയൽ സ്വദേശി സജി അനന്തിനെതിരെ പൊലീസ് കേസെടുത്തു

കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്പായി സംഗീത പുരസ്കാരത്തിന് ചലച്ചിത്ര പിന്നണി ഗായിക ഗായത്രി അർഹയായി

കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ജൈവ്വൈവിധ്യ രജിസ്റ്റർ തയ്യാ റാക്കൽ അന്തിമ ഘട്ടത്തിലേക്ക് സ്ട്സ്ഥാന് ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ രണ്ടൂവർഷം മുമ്പാണ് പദ്ധതി ആരംഭിച്ചത് വാർഡുകളിലെ സ്സ്യ ജന്തുജാലങ്ങളെ സംബ ന്ധിച്ച വിവരശേഖരണം നേരത്തെ നടത്തിയിരുന്നു